പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു

നിലപാടുകൾ കർക്കശമാക്കി അമേരിക്കയും ഇറാനും പശ്ചിമേഷ്യയിൽ ആശങ്ക ഒഴിയുന്നില്ല

മഗേഷ് ചന്ദ്രന് കിരീടം

വിശദാംശങ്ങളുമായി ഉദയൻ കിളിയന്നൂർ വോയിസ് ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയത് പെരുമാറ്റച്ചട്ടം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും

സുതാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുമെന്ന് തെരഞ്ഞെട്ടിപ്പ് കമ്മീഷണർ അറിയിച്ചു

പതിമുന്നായിരം പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഭരണകക്ഷിയായ എഎപി ക്കു പുറമേ ബിജെപിയും കോൺഗ്രസുംമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്

മൂന്ന് സീറ്റ് ബിജെപിക്ക് ലഭിച്ചപ്പോൾ കോൺഗ്രസിൽ ഒരു സീറ്റുപോലും നേടാനായില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുതിയ ഡൽഹിയുടെ വികസന കുതിപ്പിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തുടക്കമാകുമെന്ന് മന്ത്രി ് ടിറ്ററിൽ കുറിച്ചു ഡൽഹിയിലെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നതിൽ ഡൽഹി ഗവൺമെന്റ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഗവൺമെന്റിന്റെ പ്രകടനം ഉയർത്തികാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ശ്രീ

രാപ്രഷപതി പ്രത്യേക വിമാനത്തിൽ കൊച്ചി നാവിക ആസ്ഥാനത്ത് എത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി ജി

ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ലക്ഷദ്വീപിലേയ്ക്ക് പോകും

തുടർന്ന് കവരത്തിയിലെ പ്രത്യേക വേദിയിൽ അദ്ദേഹം ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്യും

പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചു ചേർക്കാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബയ്ജാലിനോട് ആവശ്യപ്പെട്ടു മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥനെക്കൊണ്ട് സംഭവം അന്വേഷിപ്പിക്കണമെന്നും ഡൽഹി പൊലീസ് കമ്മീഷർക്ക് ശ്രീ

പൊലീസ് ജോയിന്റ് കമ്മീഷണർ തലത്തിലുളള ഉദ്യോഗസ്ഥൻ സംഭവം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

വിലെ നിലവിലെ സ്ഥിതിഗതി സംബന്ധിച്ചും സമാധാനം പുനസ്ഥാപിക്കാൻ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും ആഭ്യന്തര മന്ത്രാലയം ഡൽഹി പൊലീസിനോട് റിപ്പോർട്ട് തേടി

വിലെ അക്രമ സംഭവങ്ങളെ ബി ജെ

ക്യാമ്പസിലുണ്ടായ അക്രമം ദൌർഭാഗൃകരമാണെന്നും ഇത് ഗൌരവമായി എടുക്കണമെന്നും മാനവവിഭവശേഷി മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പോരിനുള്ള വേദിയായി മാറരുതെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ പറഞ്ഞു

അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച് അടിയന്തര സ്വീകരിക്കണമെന്ന് മുതിർന്ന നേതാവ് പി ചിദംബരം നടപടി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഉഭയകക്ഷി ബ്ന്ധങ്ങളുടെ ത്വരിതഗതിയിൽ പ്രധാനമന്ത്രിയും ശ്രീ

ഡിജിറ്റൽ സമ്പദ്ഘടന തുടങ്ങി ഉഭയകക്ഷി താൽപ്പരൃമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു

ആണവകരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയതിന് പിന്നാലെ വിദേശ സൈന്യം രാജ്യം വിടണമെന്ന് ഇറാഖി പാർലമെന്റ് പ്രമേയവും പാസാക്കി

യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇനി പരിധികൾ വയ്ക്കില്ലെന്നും എന്നാൽ രാജ്യാന്തര ആണവ ഏജൻസിയുമായുള്ള ബന്ധം തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി ഉപരോധം പിൻവലിച്ചാൽ കരാറിലേക്കു മടങ്ങിയെത്തുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്

അതിനിടെ ഇറാഖിലെ പ്രമുഖ മതനേതാവായ മൊക്താദ അൽ സദ്റും അമേരിക്കൻ സേനയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു രാജ്യത്ത് ആക്രമണം നടത്തിയതിന് അമേരിക്കയ്ക്കെതിരെ ഇറാഖ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാ സമിതിയിൽ പരാതി നൽകി അമേരിക്കൻ നടപടിയെ യുഎൻ അപലപിക്കണമെന്നും ഇറാഖ് അവശ്യപ്പെട്ടു ബാഗ്ദാദിൽ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി സൈനിക നടപടിയിലുളള പ്രതിഷേധം ഇറാഖ് അറിയിക്കുകയും ചെയ്തു

ന്യൂസ് ്ഡെസ്ക് ആകാശവാണി

മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ രണ്ടു സൈനികർ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ ഊർജിതമാക്കിയത്

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പരാമർശത്തിന്റെ പേരിലാണ് മമതയ്ക്കെതിരായി സ്വകാര്യ വ്യക്തി ഹർജി നൽകിയത് രാജ്യത്തിന്റെ അവകാശത്തെയും പരമാധികാരത്തേയും വെല്ലുവിളിച്ച മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്

ബി എം എസ് ്ഒഴികെ എല്ലാവരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സി ഐ ട്ടി ്യൂ സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ശബരിമല തീർത്ഥാടകരെയും ആശുപത്രി വിനോദ സഞ്ച്ട്രർ മേഖലയെയും പാൽ പത്രം തുടങ്ങി മറ്റ് അവശ്യ സർവ്വീസുകളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലെ സേവനമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്

ഞായർ ദിവസങ്ങളിലായാണ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ശനി തകർക്കുന്നത്

അത്സ്മയം സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി

മത്സരിച്ച ഒൻപത് റൌണ്ടുകളിലും എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് മഗേഷിന്റെ കിരീട നേട്ടം

ഹൈദരാബാദിലെ രാജീവ്ഗാന്ധി ഇന്റർ നാഷണൽ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ആറ് വിക്കറ്റുകൾക്കാണ് ഹൈദരാബാദ് കേരളത്തെ പരാജയപ്പെടുത്തിയത്